പ്രത്യേക സംവിധാനം ഏർപ്പെട്ടൂത്തി ആരോഗ്യവകുപ്പ്

ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക്

കുറയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

എസ്

ഇന്ന് ഗോവയും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും

എന്നാൽ നേരത്തെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുത്ത ഗുണഭോക്താവിനെ ഒരിക്കലും വാക്സിനേഷൻ കേന്ദ്രത്തിൽ ടോക്കൺ എടുക്കാൻ ആവശൃപ്പെടരുതെന്ന് ആരോഗൃ വകുപ്പ് നിർദേശം നൽകി

സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളിലും സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു സ്ഥാനാർഥികളായി രണ്ട് തവണ മത്സരിച്ചവരെ മത്സരരംഗത്ത് നിന്നും ഒഴിവാക്കണമെന്ന സിപിഎം സെക്രട്ടേറിയറ്റ് ധാരണ സംബന്ധിച്ച് ഇന്ന് ചേരുന്ന പാർട്ടി സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യും ഈ നിബന്ധനയിൽ ആർക്കെങ്കിലും ഇളവു നൽകണമോ എന്ന കാര്യത്തിൽ ഇന്ന് ചേരുന്ന യോഗം അംഗീകാരം തേടും ഇന്നത്തെ യോഗത്തിലെ തീരുമാനങ്ങൾ വീണ്ടും ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത ശേഷമാകും ഈ മാസം എട്ടിന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്ഥാനാർഥി നിർണയം സംബന്ധിച്ച് അന്തിമരൂപം നൽകുക

മുസ്തീം ലീഗ് സ്ഥാനാർഥി നിർണയം സംബന്ധിച്ച നേതൃയോഗം ഇന്ന് പാണക്കാട് തുടക്കമായി

കോട്ടയത്തെ സീറ്റുകളിലെ തർക്കം പരിഹ്രിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ് എൻഡ്ടിഎയിൽ ബിജെപിയുടേയും ബി ഡി ജെ എസിന്റേയും സ്ഥാന്മാർഥി നിർണയ ചർച്ചകൾ അവസാനഘട്ടത്തിലെത്തി

ബിജ്പ്പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പ്ലീജയ യാത്രയുടെ സമാപനത്തോട് അനുബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിയും വിധമാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

റിട്ടേണിംഗ് ഓഫീസർമാർക്കായി സംഘടിപ്പിച്ച പരിശീലനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭയരഹിതമായി ജോലി ചെയ്യുന്നതിന് എല്ലാവിധ പിന്തുണയും ഉറപ്പുനൽകുമെന്ന് വൃക്തമാക്കിയ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹുക്യുണ്ട് അനിവാര്യമാണെന്നും പറഞ്ഞു പത്തനംതിട്ട ഇൻട്രോ പ്രി ഒരു മുന്നണിയേയും സ്ഥിര്മായി പിന്തുണയ്ക്കാത്ത പത്തനംതിട്ട ജില്ലയുടെ മനസ് ഈ ന്യൂയ്മസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും എന്നത് പ്രവിച്ചനാതീതമാണ്

ജില്ലയെ എക്കാലവും വരുതിയിൽനിർത്തുക എന്നത് ഒരു മുന്നണിക്കും അത്ര എളുപ്പമല്ല എന്നതാണ് ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രം തിരുവല്ല ആറന്മുള അടൂർ റാന്നി കോന്നി എന്നിങ്ങനെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ പരമ്പരാഗത ശക്തികേന്ദ്രമായിരുന്ന പല മണ്ഡലങ്ങളും എൽ ഡി എഫിലേക്ക് ചാഞ്ഞ ചരിത്രമാണ് ജില്ലക്കുള്ളത്

ഡി എഫിനൊപ്പവും രണ്ട് മണ്ഡലങ്ങൾ യു ഡി

ഡി

ഡി എഫ് നിലനിർത്തിയെങ്കിലും ഉപതിരഞ്ഞെടുപ്പിൽ കോന്നിയും ഇടതുമുന്നണിക്കൊപ്പമായി

ജില്ലയിലെ ബി ജെ

യുടെ വളർച്ചയും രാഷ്ട്രീയപ്രവചനങ്ങൾ തെറ്റിക്കാൻ പര്യാപ്തമായ ഘടകമായി നിലനിൽക്കുന്നു ഈ സ്ഥിതിയിൽ പത്തനംതിട്ട പിടിക്കാൻ മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ടം നടത്തേണ്ടി വരുമെന്നതിൽ സംശയമില്ല സംസ്ഥാനം ചൂട്ട് സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചരൃത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം ആലപ്പുഴ തുടങ്ങിയ ഇടങ്ങളിൽ രണ്ട് ഡ്വിിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ആണ്ട്രുമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദേശം നൽകി

ശ്രീധരന്റെ മുഖ്യമത്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ വിശദീക്രണവുമായി ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

ശ്രീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരണമെന്ന് അദ്ദേഹത്തോടും പാർട്ടിയോടും ബിജെപി അഭ്യർത്ഥിച്ചിരുന്നു എന്ന കെ സുരേന്ദ്രന്റെ പരാമർശം ചർച്ചയായിരുന്നു

ഡോളർ കടത്തിലെ ഇവരുടെ പങ്ക് സംബന്ധിച്ച് കേസിലെ പ്രതിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണ ഏജൻസികൾ രണ്ട് മാസമായി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് ഗൌരവകരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പാലക്കാട് സുരക്ഷ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഡി ജി

നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സുരക്ഷാ നടപടികൾ അദ്ദേഹം വിലയിരുത്തി

സി ഇന്ന് റൌണ്ട് ഗ്ലാസ് പഞ്ചാബിനെ നേരിടും

ഇടുക്കി പോസ്റ്റൽ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്ത അവശ്യവകുപ്പുകളിലെ ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം

എൽ ഫുട്ബോളിൽ ആദ്യ സെമിയിൽ ഇന്ന് ഗോവയും മുംബൈ സ്റ്റീറ്റിയും ഏറ്റുമുട്ടും

രണ്ടാം സെമിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ

കെ മോഹൻ ബഗാനുമായി നാളെ മത്സരിക്കും

സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം ആരംഭിച്ചു പത്തനം തിട്ടയിൽ നിന്നും എത്തിയ വിജയയാത്രയെ ജില്ലാ അതിർത്തിയായ പത്തനാപുരം കല്ലുംകടവിൽ ജില്ലാ പ്രസിഡന്റ് ബി